ആലപ്പാട് ഖനന വിഷയത്തിൽ ജനങ്ങളുടെയും സംസ്ഥാന ത്തിന്റെയും തൊഴിലാളികളുടെയും താൽപ്പരൃം സംരക്ഷിക്കു മെന്ന് മന്ത്രി ഇ പി ജയരാജൻ കരിമണൽ ഖനനം നിർത്തിവെക്കണമെന്ന് വി എസ് അച്യു താനന്ദൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കങ്ങൾ ചർച്ചചെ യ്യാൻ എൽ

എഫ് യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി

നിലവിലെ സാഹചര്യത്തിൽ സാമ്പത്തിക സംവരണം നീതീ കരിക്കാൻ കഴിയില്ലെന്ന് മുസ്ലിംലീഗ് ദേശീയ ജനറൽ സെക്ര ട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മേഘാലയയിൽ കൽക്കരി ഖനിയിൽ കുടുങ്ങിയ തൊഴിലാ ളികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി

വേഗത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഈ വർഷം തന്നെ നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീ ക്ഷയെന്നും മന്ത്രി പറഞ്ഞു

പി യു

ആധുനിക സജ്ജീകരണങ്ങളോടെ കാസർകോട് കൊല്ലം ഉൾപ്പെടെ മൂന്ന് ജില്ലകളിൽ മൂന്ന് സാംസ്കാരിക സമുച്ചയങ്ങൾക്ക് സാമ്പത്തിക അനുമതി നൽകിയിട്ടുണ്ട്

ആലപ്പാട് ഖനന വിഷയത്തിൽ ജനങ്ങളുടെയും സംസ്ഥാനത്തി ന്റെയും തൊഴിലാളികളുടെയും താൽപ്പര്യം സംരക്ഷിച്ച് നിലപാ ടെടുക്കുമെന്ന് മന്ത്രി ഇ

മുഖ്യമന്ത്രി യുടെ നിർദേശപ്രകാരം സമരസമിതി നേതാക്കളെ വൈകിട്ട് അഞ്ചിന് ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു സമരക്കാരെ ക്ഷണിക്കുന്നതിന് പ്രത്യേക ദൂതൻ തന്നെ പോയി ട്ടുണ്ടെന്നും ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടില്ലെന്ന ആരോപണത്തിന് മറു പടിയായി അദ്ദേഹം പറഞ്ഞു

അച്യുതാനന്ദന്റെ പേര് വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുതെന്നും ജയരാജൻ ആവശ്യപ്പെ ട്ടു ഖനനം നിർത്തണമെന്ന് സമരക്കാർപോലും പറഞ്ഞിട്ടില്ലെന്നും അവരുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ആലപ്പാട്ടെ കരിമണൽ ഖനനം വിദഗ്ദ്ധ പഠന റിപ്പോർട്ട് വരു ന്നതുവരെ നിർത്തിവെക്കണമെന്ന് ഭരണപരിഷ്ക്കാര കമ്മീഷൻ ചെയർമാൻ വി എസ് അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു പരിസ്ഥിതി സമിതിയുടെ റിപ്പോർട്ടും ഇക്കാര്യത്തിൽ പരിഗണിക്കണമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രസ്താവനയിൽ പറഞ്ഞു ഖനന ത്തിലൂടെ ആലപ്പാടിന് സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാക്കാൻ പുറത്തുവന്ന ഉപഗ്രഹചിത്രങ്ങളും ഒരു വർഷം മുമ്പ് വന്ന നിയമ സഭാ പരിസ്ഥിതി കമ്മറ്റിയുടെ പഠന റിപ്പോർട്ടും മാത്രം പരിശോ ധിച്ചാൽ മതിയെന്ന് വി എസ് അറിയിച്ചു ധാതു സമ്പത്ത് വെറുതെ കളയരുതെന്ന ലാഭചിന്തയിലൂടെ യല്ല അപകടകരമായ ഒരു പാരിസ്ഥിതിക പ്രതിസന്ധിയെ നോക്കി കാണേണ്ടത് നിലവിൽ ഖനനവുമായി മുന്നോട്ടുപോയാൽ കടലും കായലും ഒന്നായി അപ്പർ കുട്ടനാട്വരെ കാർഷിക ജനവാസ മേഖലപോലും ഇല്ലാതാകുന്ന സ്ഥിതിയുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു ജനിച്ച മണ്ണിൽത്തന്നെ മരിക്കണമെന്ന ആലപ്പാട്ടുകാരുടെ ആഗ്രഹത്തിന് കരിമണലിനേക്കാൾ വിലയു ണ്ടെന്നും വി എസ് അഭിപ്രായപ്പെട്ടു അതിനിടെ വൈകിട്ട് അഞ്ചിന് നടക്കുന്ന ചർച്ചയിൽ പങ്കെടു ക്കണമെന്നാവശ്യപ്പെട്ട് കരുനാഗപ്പള്ളി തഹസിൽദാർ സമരസ മിതി നേതാക്കൾക്ക് കത്തുനൽകി

എഫ് യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി ലോക്സഭാതിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന മേഖലാ ജാഥകൾ സംബന്ധിച്ച് യോഗം തീരുമാനമെടുത്തേക്കും മുന്നണി വിപുലീകരണത്തിന് ശേഷം ചേരുന്ന ആദ്യ നേതൃ യോഗമാണ് ഇന്നത്തേത്

ഡി എഫ് നേതൃയോഗം ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്ത് ചേരും രാവിലെ ചേരാനിരുന്ന യോഗം കെ പി സി സി സെക്രട്ടറി എം കെ അബ്ദുൾ ഗഫൂർ ഹാജിയുടെ മരണത്തെ തുടർന്നാണ് മാറ്റിയത് ലോക്സഭാതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റ് വിഭ ജന ചർച്ചകൾക്കായാണ് മുന്നണി യോഗം ചേരുന്നത്

സീറ്റുകൾ വെച്ചുമാറുന്ന കാര്യവും യോഗത്തിന്റെ പരിഗ ണനയ്ക്ക് വരാനിടയുണ്ട്

ഡി എഫ് വിപുലീകരണവും ചർച്ചാ വിഷയമാവും നിലവിലെ സാഹചര്യത്തിൽ രാജ്യത്ത് സാമ്പത്തിക സംവ രണം എന്നത് നീതീകരിക്കാൻ കഴിയില്ലെന്ന് മുസ്ലിംലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം

സാമ്പത്തിക സംവരണത്തെ വിമർശിക്കുകയല്ലെന്നും സാമൂ ഹികമായി പിന്നാക്കം നിൽക്കുന്നവരെ മുന്നോട്ടുകൊണ്ടുവരാ ൻ ആവാത്തിടത്തോളംകാലം സാമ്പത്തിക സംവരണമെന്ന വിഷ യത്തിന് പ്രസക്തിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു സെക്രട്ടേറിയ റ്റിന് മുന്നിൽ മുസ്ലിംലീഗ് നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി കർണാടകയിൽ കോൺഗ്രസ് നിയമസഭാകക്ഷി നാളെ യോഗം ചേരും ഉച്ചകഴിഞ്ഞ് മൂന്നിന് ബെങ്കലൂരുവിലാണ് യോഗം കോൺഗ്രസ് എം എൽ എ മാരെ ബി

പിയിലേക്ക് കൂറുമാറ്റാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണങ്ങൾക്കിടെ നടക്കുന്ന യോഗത്തിന് ഏറെ പ്രാധാന്യമുണ്ട് എല്ലാ എം

എ മാരും യോഗത്തിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്ന് പാർട്ടി നിർദേശം നൽകി യിട്ടുണ്ട് പങ്കെടുക്കാത്താവരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വ ത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് കോൺഗ്രസ് നിയമസഭാകക്ഷി നേതാവ് സിദ്ധരാമയ്യ ബെങ്കലൂരുവിൽ അറിയിച്ചു മേഘാലയ ഈസ്റ്റ് ജയന്തി ഹിൽസിലെ കൽക്കരി ഖനിയിൽ കൂടുങ്ങിയ തൊഴിലാളികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി

അഴിച്ചുവിട്ട കാള ക്കുട്ടന്മാരെ കീഴടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവർക്ക് കുത്തേറ്റത് മധുരയ്ക്ക് സമീപം ആവണിയാപുരത്തും പാലമേടു മായി നടന്ന ജെല്ലിക്കെട്ടുകളിലായിരുന്നു അപകടം

രഞ്ജിട്രോഫിക്രിക്കറ്റിൽ കേരളം സെമിയിൽ പ്രവേശിച്ചു

ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ മുന്നാ മത്തെയും അവസാനത്തെയും മത്സരം നാളെ മെൽബണിൽ നട ക്കും

സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേള നാളെ കോഴിക്കോട്ട് തുടങ്ങും ഔപചാരിക ഉദ്ഘാടനം മറ്റന്നാൾ മെഡി ക്കൽ കോളജ് ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിക്കും മേള ഞായറാഴ്ച സമാപിക്കും

കണ്ണൂർ കോട്ട മൈതാനത്താണ് റാലി റിക്രൂട്ട്മെന്റ് റാലി മാറ്റിയതായി സമൂഹ മാധ്യമങ്ങളി ലൂടെ പ്രചരിക്കുന്നതിൽ വഞ്ചിതരാകരു തെന്ന് സേനാ അധികൃതർ അറിയിച്ചു കെ പി സി സി സെക്രട്ടറിയും കയർഫെഡ് ചെയർമാ നുമായിരുന്ന എം കെ അബ്ദുൾ ഗഫൂർ ഹാജി നിര്യാതനായി

രാജ്യത്ത് ഇന്ധനവിലയിൽ ഇന്നും വർധന

അന്താ രാഷ്ട്രതലത്തിൽ ക്രൂഡോയിൽ വിലയിൽ വന്ന മാറ്റമാണ് ഇന്ധ നവില വർധിക്കാൻ കാരണം ദേശീയ പണിമുടക്ക് ദിവസം തിരുവനന്തപുരം എസ് ബി ഐ ട്രഷറി ബ്രാഞ്ച് ആക്രമിച്ച കേസിലെ പ്രതികളുടെ ജാമ്യാപേ ക്ഷയിൽ വിധി ഇന്ന് തിരുവനന്തപുരം ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്

ഒ നേതാക്കളായ പി കെ വിനുകുമാർ അനിൽകുമാർ സുരേഷ് ബാബു ബിജു രാജ് ശ്രീവത്സൻ സുരേഷ് കുമാർ എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് കോടതി പരിഗണിക്കുന്നത് സംസ്ഥാന നിയമസഭയുടെയും സാക്ഷരതാ മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആരംഭിച്ച ഭരണഘടനാ സാക്ഷരതാ സന്ദേശയാത്രയ്ക്ക് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ സ്വീകരണം നൽകും താമരശ്ശേരി ബാലുശ്ശേരി കോഴിക്കോട് രാമനാട്ടുകര എന്നിവിടങ്ങളിലാണ് സ്വീകരണം ഭരണഘടനാ സാക്ഷരതാ ജന കീയ വിദ്യഭ്യാസ പരിപാടിയുടെ ഭാഗമായി കാസർകോട്ട് നിന്ന് തുടങ്ങിയ യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കും റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി കോഴിക്കോട് സിറ്റിപൊലീസ് ഇന്നുമുതൽ സീറോ അവർ ആചരിക്കും ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കാത്തവർക്കെതിരെ കർശനനടപടികൾക്കു പകരം ട്രാഫിക് നിയമങ്ങൾ സംബന്ധിച്ച ബോധവൽക്കരണമാണ് സീറോ അവറിന്റെ ലക്ഷ്യം

ആളപായമോ നാശനഷ്ടങ്ങളോ ഉണ്ടായതായി റിപ്പോർട്ടില്ലെന്ന് അധികൃതർ പോർട്ട്ബ്ലെയറിൽ അറി യിച്ചു

ആർ ഒ നെറ്റ്വർക്ക് സംവിധാനത്തിലെ തടസ്സത്തെ തുടർന്നാണ് തിയ്യതി നീട്ടിയത് സംസ്ഥാനത്ത് ആറ് ലക്ഷം പേരാണ് വോട്ടർപട്ടിക യിൽ പുതുതായി പേര് ചേർക്കാൻ അപേക്ഷ നൽകിയത് മാധ്യമ പ്രവർത്തകനെ വെടിവെച്ചു കൊന്ന കേസിൽ വിവാദ ആൾ ദൈവം റാം റഹീം സിംഗിന് ഇന്ന് സി ബി

കേസിൽ നാലുപേരും കുറ്റക്കാരാണെ ന്ന് ഹരിയാന പഞ്ച്കുല സി ബി ഐ കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു

കേരള പ്രവാസി സംഘം അഞ്ചാംസംസ്ഥാനസമ്മേളനം നാളെയും മറ്റന്നാളുമായി കോഴിക്കോട്ട് നടക്കും മറ്റന്നാൾ സമാ പന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജ യൻ നിർവഹിക്കും സമഗ്ര കുടിയേറ്റ നിയമം ഉണ്ടാക്കണമെന്ന തുൾപ്പെടെ പ്രവാസികളുടെ ഗൌരവമേറിയ വിഷയങ്ങൾ സമ്മേ ളനം ചർച്ചക്കെടുക്കുമെന്ന് ഭാരവാഹികൾ കോഴിക്കോട്ട് പറഞ്ഞു